പത്രികാസമർപ്പണം ഏപ്രിൽ നാലുവരെ

ബിജെപി കോർകമ്മിറ്റിയോഗം ഉച്ചകഴിഞ്ഞ് കോട്ടയത്ത്

ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ സംസ്ഥാനത്ത് പ്രചാ രണ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി

എയും സ്ഥാനാർഥി പ്രഖ്യാപനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അതേസമയം ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും പല മണ്ഡലങ്ങ ളിലും യു

എ സ്ഥാനാർത്ഥികൾ പ്രാഥമിക പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്

ഏപ്രിൽ നാല് വരെ പത്രിക നൽകാം അഞ്ചാം തീയതി സൂക്ഷ്മ പരിശോധനു നടക്കും ഏപ്രിൽ എട്ട് വരെ പത്രിക പിൻവലിക്കാം

വോട്ടർപട്ടികയിൽ പേരുചേർക്കാൻ ഇനിയും സമയം നൽകും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്ന അവ സാനദിവസംവരെ വോട്ടർപട്ടികയിലും പുതുതായി പേര് ചേർക്കാം

ഇവ കേടാ കാൻ സാധ്യത കൂടുതലായതുകൊണ്ടാണ് കൂടുതൽഎണ്ണം കരുതിവയ്ക്കു ന്നത്

ഇവ പരിശോധിച്ച് നടപടിയെടുക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീ സർമാർകൂടിയായ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകി

വിവിധ സംസ്ഥാനങ്ങൾ സമർപ്പിച്ച സ്ഥാനാർത്ഥി പട്ടിക യോഗം പരിഗ ണിക്കും പാർട്ടി പ്രവർത്തക സമിതി നാളെ ഗുജറാത്തിൽ യോഗം ചേരു ന്നുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാ കില്ലെന്ന് കെ

സി സി

സ്ക്രിനിംഗ് കമ്മിറ്റി ചർച്ച പ്രാഥമിക ഘട്ടംമാത്രമാണെന്ന് അദ്ദേഹം ഒരു വാർത്താ ചാനലിനോട് പറഞ്ഞു

സ്ഥാനാർത്ഥി പട്ടിക വൈകുമെന്ന് എ

ജനറൽസെ ക്രട്ടറി കെ

പാർട്ടി ഹൈക്കമാന്റ് ആവശ്യപ്പെട്ടാൽ ഏത് ഉന്നതനേതാവും മത്സ രിക്കുമെന്ന് കെ

സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ പറ ഞ്ഞു മത്സരിക്കില്ല എന്ന് താൻ പ്പറഞ്ഞിട്ടില്ലെന്നും ഹൈക്കമാന്റ് ആവ ശ്യപ്പെട്ടാൽ മത്സരിക്കാൻ ബാധ്യസ്ഥനാണെന്നും അദ്ദേഹം ന്യൂഡൽഹി യിൽ വ്യക്തമാക്കി കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച നിർണ്ണായക ചർച്ചകൾക്കായി ഇന്ന് ഡൽഹിയിൽ യോഗം ചേരുമെന്ന് അദ്ദേഹം അറിയിച്ചു

ഡി എഫ്തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മറ്റന്നാൾ കേരളത്തിലെത്തു മെന്ന് കെപി

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു വ്യാഴാഴ്ച രാവിലെ തൃശ്ശൂർ തൃപ്രയാർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നട ക്കുന്ന ദേശീയ ഫിഷർമെൻ പാർലമെന്റിൽ അദ്ദേഹം സംബന്ധിക്കുമെന്ന് മുല്ലപ്പള്ളി തിരുവനന്തപുരത്ത് പറഞ്ഞു തുടർന്ന് രാഹുൽഗാന്ധി പുൽവാ മയിൽ വീരമൃത്യുവരിച്ച വയനാട് സ്വദേശിയായ സൈനികൻ വസന്തകു മാറിന്റെയും പെരിയയിൽ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബാംഗങ്ങളെ സന്ദർശിക്കും വൈകീട്ട് കോഴിക്കോട് കടപ്പുറത്ത് മലബാർ ജില്ലയുടെ ജനമഹാറാലിയെ രാഹുൽഗാന്ധി അഭിസംബോധന ചെയ്യുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു

അന്തിമ രൂപം നൽകിയശേഷം സ്ഥാനാർത്ഥി പട്ടിക അംഗീകാരത്തിനായി കേന്ദ്ര നേതൃത്വത്തിന് കൈമാ റും

മിസോറാം മുൻഗവർണ്ണർ കുമ്മനം രാജശേഖരനുൾപ്പെടെ പ്രമുഖർ മത്സ രരംഗത്തുണ്ടാവുമെന്നാണ് റിപ്പോർട്ട് ബിഡിജെഎസ് അധ്യക്ഷൻ തുഷാർവെള്ളാപ്പള്ളി ന്യൂഡൽഹിയിൽ ഇന്ന് ബിജെപി അധ്യക്ഷൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും തുഷാർ മത്സരിക്കുന്ന കാരൃത്തിൽ ചർച്ചയിൽ തീരുമാനമാകുമെന്നാണ് റിപ്പോർട്ട് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയെ ഇന്ന് വൈകീട്ട് പ്രഖ്യാപിച്ചേക്കും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇന്നലെ പാർട്ടി പ്രവർത്തക സമിതിയും സ്റ്റിയറിംഗ് കമ്മി റ്റിയും യോഗം ചേർന്നിരുന്നു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനായി പാർട്ടി ചെയർമാൻ കെ

മാണി കോട്ടയത്തെ പ്രാദേശിക നേതാക്ക ളുമായി ചർച്ച നടത്തുകയാണ് ഇതിനുശേഷമായിരിക്കും പ്രഖ്യാപനം ലോക് താന്ത്രിക് ജനതാദൾ സംസ്ഥാനകമ്മിറ്റി ഇന്ന് കോഴിക്കോട്ട് ചേരും വടകരയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന നില പാടിലാണ് പാർട്ടി ജില്ലാകമ്മിറ്റി എന്നാൽ ഇടതുമുന്നണിയ്ക്കൊപ്പം നിൽക്കുമെന്നും പാർട്ടിയിൽ ഭിന്നതയില്ലെന്നും എൽ

സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ക്ക് പി ഹാരിസ് അറിയിച്ചു പത്മ അവാർഡുകൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ന്യൂഡൽഹി യിൽ സമ്മാനിച്ചു കേരളത്തിൽനിന്ന് പുരസ്കാരത്തിന് അർഹനായ മോഹൻലാൽ രാഷ്ട്രപതിയിൽ നിന്ന് പത്മഭൂഷൻ ഏറ്റുവാങ്ങി

ശേഷിക്കുന്നവർക്ക് ഈ മാസം അവസാനം സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും

ദക്ഷിണ കാശ്മീരിലെ ത്രാലിൽ ഇന്നു പുലർച്ചെയുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മൂന്ന് ഭീകര പ്രവർത്തകരിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം രഹസ്യ വിവര ത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേന മേഖലയിൽ നടത്തിയ തിര ച്ചിലിനിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു

കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ സുൻജാവൻ സൈനിക ക്യാമ്പിനുനേരെയുണ്ടായ ഭീകരാക്രമണത്തിലും മുദാസിർ അഹമ്മദ്ഖാന് പങ്കുള്ളതായി കരുതുന്നു സൌദി വിദേശകാരൃമന്ത്രി ആദിൽ അൽജുബൈർ ഇന്ന് ഡൽഹിയി ലെത്തും കേന്ദ്രമന്ത്രി സുഷമാസ്വരാജുമായി അദ്ദേഹം കൂടിക്കാഴ്ച നട ത്തും മൂന്നാഴ്ച മുൻപ് സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനൊപ്പം അദ്ദേഹം ഡൽഹിയിലെത്തിയിരുന്നു ഇതിനുശേഷം യു

ഇ യിൽ ഒ

സമ്മേളനത്തിൽ സുഷ്മാ സ്വരാജുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിനിക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം മറ്റുന്നാൾ ഡൽഹിയിൽ നടക്കും അഞ്ച് മത്സര പരമ്പരയിൽ രണ്ടുവീതം നേടി ഇരുടീമുകളും സമനിലയിലാണ്

ഇന്നലെ മൊഹാലിയിൽ നടന്ന നാലാം ഏകദിനത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ നാലുവിക്കറ്റിന് തോൽപ്പിച്ചിരുന്നു ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോൾ സെമി ഫൈനലിലെ രണ്ടാം പാദ മത്സരത്തിൽ ബംഗലൂരു എഫ്

ബംഗലൂരൂവില്ലെ ശ്രീകഠീരവ സ്റ്റേഡിയത്തിൽ വൈകീട്ട് ഏഴരയ്ക്കാണ് മത്സരം പത്ത് ദീവ്പസത്തെ ഉത്സവത്തിന് ശബരിമലയിൽ ഇന്ന് വൈകീട്ട് നട തുറക്കും നാളെ രാവിലെ തന്ത്രി കണ്ഠരർ രാജീവരരുടെ നേതൃത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറ്റും പ്രാസാദ ശുദ്ധിക്രിയകളും ബിംബ ശുദ്ധി ക്രിയകളും ഇന്നും നാളെയുമായി സന്നിധാനത്ത് നടക്കും

ട്രഷറി നിയന്ത്രണങ്ങൾമൂലം ത്രിതല പഞ്ചായത്തുകളുടെയും നഗര സഭകളുടെയും പദ്ധതി പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാ ണെന്ന് കോൺഗ്രസ് നിയമസഭാകക്ഷി ഉപനേതാവ് കെ

ജോസഫ് എം

എ കുറ്റപ്പെടുത്തി ഒന്നരമാസത്തിലേറെയായി തദ്ദേശസ്വയം ഭരണ സ്ഥാപനങ്ങൾ സമർപ്പിക്കുന്ന ഒരു ലക്ഷം രൂപയിൽ കൂടിയ ചെക്കു ട കൾ മാറി പണം നൽകാൻ ട്രഷറി അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു പ്രവൃത്തി പൂർത്തിയാക്കി സമർപ്പിച്ച ബില്ലുകൾ മാറി നൽകാത്തതിനാൽ കോൺട്രാക്ടറന്മാർ വിക സന പ്രവർത്തനങ്ങൾ നിറുത്തിവെച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറ ഞ്ഞു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എം

ജയരാജനെ സി

എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു

ജില്ലാ സെക്ര ട്ടറിയായിരുന്ന പി ജയരാജൻ വടകരയിൽ എൽ

സ്ഥാനാർത്ഥി യായ സാഹചര്യത്തിലാണ് പാർട്ടി തീരുമാനം

പത്മ അവാർഡുകൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ന്യൂഡൽഹി യിൽ സമ്മാനിച്ചു